അന്തിമ വോട്ടർപട്ടിക ഇന്ന്

മറ്റ് കക്ഷികൾക്ക് എട്ട് സീറ്റ് ലഭിച്ചു

ഹിന്ദുസ്ഥാനി അവാമി മോർച്ചയ്ക്കും വികാസ് ശീൽ ഇൻസാൻ പാർട്ടിയ്ക്കും നാല് സീറ്റ് വീതം നേടാനായി

രും ലോകത്തെ ജനാധിപത്യത്തിന്റെ ആദ്യ പാഠം പഠിപ്പിച്ച ബീഹാർ ജനാധിപത്യത്തെ എങ്ങനെ ശക്തമാക്കാമെന്ന് ഇപ്പോൾ കാണിച്ച് തന്നിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ബീഹാറിൽ ഒരിക്കൽക്കൂടി ജനങ്ങളുടെ അനുഗ്രാഹാശിസ്സുകളോടെ ജനാധിപത്യം വിജയിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി അവരുടെ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ചു ദരിദ്രരും നിരാലംബരും സ്ത്രീകളും വികസനത്തിന് ഒറ്റക്കെട്ടായി വോട്ട് ചെയ്യാനെത്തിയെന്ന് അദ്ദേഹം പറഞ്ഞു

ബീഹാറിൽ വികസനവും പുരോഗതിയും സദ് ഭരണവും തിരഞ്ഞെടുത്തതിന് ആഭ്യന്തരമന്ത്രി അമിത് ഷായും ബീഹാർ ജനതയെ നന്ദി അറിയിച്ചു രുര മധ്യപ്രദേശിൽ വമ്പൻ വിജയത്തോടെ ബി ജെ പി ഭരണം നിലനിർത്തി

ജെ പി സ്വന്തമാക്കി കോൺഗ്രസ്സിന് ഒൻപത് സീറ്റ് ലഭിച്ചു ശേഷിക്കുന്ന ഒരു സീറ്റിലും ബി ജെ പി സ്ഥാനാർത്ഥി മുന്നിലാണ് രുര ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സെക്രട്ടറി ജനറൽ ഉമേഷ് സിൻഹ വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും സംവിധാനങ്ങളും ആത്മാർത്ഥതയോടെ തെരഞ്ഞെടുപ്പ് ഫല പ്രഖ്യാപനത്തിനായി പ്രവർത്തിച്ചുവെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു

ഈ പ്രക്രിയ പൂർണ്ണമായി വീഡിയോയിൽ ചിത്രീകരിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശമുണ്ടെന്നും അതുമൂലം ഫലപ്രഖ്യാപനം വൈകാൻ സാധ്യതയുണ്ടെന്നും ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർ ചന്ദ്രഭൂഷൺ കുമാറും വിശദീകരിച്ചു

മറ്റ് ജില്ലകളിൽ പുതിയ കോവിഡ് രോഗികളുടെ എണ്ണം ഇതിൽ താഴെയാണ്

രും കോവിഡ് ട്രീറ്റ്മെന്റ് സെന്ററാക്കിയ കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് മാനേജ്മെന്റിന് തിരികെ നൽകാൻ ജില്ലാ കലക്ടർ ഉത്തരവിട്ടു

മെഡിക്കൽ പി ജി വിദ്യാർത്ഥികൾ സമർപ്പിച്ച ഹർജിയിലാണ് കോടതി ഉത്തരവ്

ടോൾപ്പാസയുടെ പ്രവർത്തനം തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ് രും കോവിഡ് ഉണ്ടാക്കിയ ശാരീരിക മാനസിക സമ്മർദ്ദങ്ങളെ പോസിറ്റീവായി നേരിടണമെന്ന് പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ റോഷൻ ആൻഡ്രൂസ് ആകാശവാണിയോട്

ദുബായിൽ ഡൽഹി ക്യാപിറ്റൽസിനെ അഞ്ച് വിക്കറ്റിന് തോൽപ്പിച്ചാണ് അഞ്ചാം തവണയും മുംബൈ ജേതാക്കളായത്

അതോടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണവും ആരംഭിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി

ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പുനർ വിജ്ഞാപനം ചെയ്ത സംവരണ നിയോജക മണ്ഡലങ്ങളും വാർഡുകളും ഇന്ന് നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കും രും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും ഏതാനും തദ്ദേശ സ്ഥാപനങ്ങളിൽ വോട്ടർപട്ടികയുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കാൻ കാലതാമസം നേരിട്ടതിനെത്തുടർന്നാണ് ഒരു ദിവസം നീട്ടി നൽകിയത് രും കോവിഡ് വ്യാപനത്തിന്റെ സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് പത്രിക സമർപ്പിക്കാൻ മൂന്നുപേരിൽ കൂടുതൽ എത്താൻ പാടില്ലെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിർദ്ദേശിച്ചു ഒരു സമയം ഒരു സ്ഥാനാർത്ഥിയുടെ ആളുകൾക്ക് മാത്രമേ ഹാളിൽ പ്രവേശനം നൽകൂ സാമൂഹ്യ അകലം മാസ്ക് സോപ്പിന്റേയോ സാനിറ്റൈസറിന്റേയോ ഉപയോഗം എന്നിവ നിർബന്ധമാക്കിയിട്ടുണ്ട് രുമ വയനാട് പടിഞ്ഞാറത്തറ മീൻമുട്ടിയ്ക്ക് സമീപം വെടിവെപ്പിൽ മാവോയിസ്റ്റ് കൊല്ലപ്പെട്ട സംഭവത്തിൽ മജിസ്ട്രേറ്റ്തല അന്വേഷണത്തിന് ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ കലക്ടർ ഡോ

മൂന്ന് മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാൻ ആഭ്യന്തരവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ടി

രുര നിക്ഷേപത്തട്ടിപ്പ് കേസിൽ പൊലീസ് കസ്റ്റഡിയിൽ കഴിയുന്ന എം സി കമറുദ്ദീൻ എം

എ യെ ഇന്ന് കാഞ്ഞങ്ങാട് ഹോസ്ദുർഗ് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും രണ്ട് ദിവസത്തെ കസ്റ്റഡി കാലാവധി ഇന്ന് കഴിയുന്ന സാഹചര്യത്തിലാണ് കമറുദ്ദീനെ കോടതിയിൽ ഹാജരാക്കുന്നത് അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷയും കോടതി ഇന്ന് പരിഗണിച്ചേക്കും രും ദേശീയപാതയിൽ കണ്ണൂരിനും തലശ്ശേരിക്കുമിടയിലെ മുഴപ്പിലങ്ങാട് ഫ്ലൈ ഓവറിലെ ടോൾപിരിവ് നിർത്തി തലശ്ശേരി മാഹി ബൈപ്പാസ് ആരംഭിക്കുന്ന ടോൾബൂത്ത് പരിസരം നിർമ്മാണ പ്രവൃത്തികൾക്കായി ദേശീയപാതാ അതോറിറ്റിക്ക് കൈമാറുന്നതിന്റെ ഭാഗമായാണ് നടപടി രും കണ്ണൂർ ആകാശവാണിയിലെ സീനിയർ അനൌൺസറും ഗായകനുമായ അശോക് കുമാർ സർവ്വീസിൽ നിന്ന് വിരമിച്ചു